എൽ ഡി എഫിൽ സീറ്റ് വിഭജനത്തിന് രണ്ടാം ഘട്ട ഉഭയകക്ഷി ചർച്ച ഇന്ന് ആരംഭിക്കും ഘടക കക്ഷികളുമായി സി പി ഐ എം നടത്തുന്ന ഉഭയകക്ഷി ചർച്ച അടുത്ത ദിവസങ്ങളിൽ പൂർത്തിയാക്കും യു ഡി എഫ് സീറ്റ് വിഭജന കാര്യത്തിൽ നാളെ തീരുമാനമുണ്ടാ യേക്കും

എത്രയും വേഗം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ നീക്കത്തിലാണ് എൻ ഡി എ സീറ്റുകൾ സംബന്ധിച്ച് എൻ ഡി എ ധാരണയിലെത്തിയതായി റിപ്പോർട്ടുണ്ട്

രുഭ എൽ ഡി എഫ് ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളെ യു ഡി എഫ് എതിർക്കുകയാണെന്ന് വിലപിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ എൽ ഡി എഫിന്റെ ചരിത്രം മറക്കുകയും മറയ്ക്കുകയും ചെയ്യരുതെന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു കഴിഞ്ഞ യു ഡി ഗവൺമെന്റിന്റെ ജനോപകാരപ്രദമായ എഫ് പ്രവർത്തനങ്ങളെയും പദ്ധതികളെയും എതിർക്കുകയും തകർക്കുകയും ചെയ്തത് സി

വിഴിഞ്ഞം പദ്ധതി കണ്ണൂർ വിമാനത്താവള പദ്ധതി തിരുവനന്തപുരം കോഴിക്കോട് ലൈറ്റ് മെട്രോ ഗെയിൽ പദ്ധതി സ്മാർട്ട് സിറ്റി തുടങ്ങിയവ പ്രതിപക്ഷത്തിരുന്നപ്പോൾ സി പി ഐ എം എതിർത്ത പദ്ധതികൾക്ക് ഉദാഹരണങ്ങളാണെന്ന് അദ്ദേഹം അറിയിച്ചു അഴിമതിയിൽ മുങ്ങിയ ആഴക്കടൽ മത്സ്യബന്ധനം പോലെ പദ്ധതികളെയാണ് യു ഡി എഫ് എതിർത്തതെന്നും അത് സി പി ഐ എമ്മിനും ഗവൺമെന്റിനും അംഗീകരിക്കേണ്ടി വന്നുവെന്നും ഉമ്മൻചാണ്ടി പറഞ്ഞു ദ്ദേ തിരുവനന്തപുരം ജില്ലയിൽ പൊതുനിരത്തുകളിൽ സ്ഥാപിച്ച മുഴുവൻ അനധികൃത പരസ്യ ബോർഡുകളും ഹോർഡിംഗുകളും ഇന്ന് വൈകുന്നേരത്തിനു മുൻപ് നീക്കം ചെയ്യണമെന്ന് ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ കലക്ടർ ഡോ

അനധികൃത ബോർഡുകളും മറ്റു പരസ്യങ്ങളും സ്ഥാപിച്ചവർ സ്വന്തം ചെലവിൽ അവ നീക്കം ചെയ്യണം ഇക്കാര്യം നിരീക്ഷിക്കാൻ ജില്ലാ ഇലക്ഷൻ ഓഫീസറുടെയും പൊലീസിന്റെയും നേതൃത്വത്തിൽ ആന്റി ഡിഫേസ്മെന്റ് സ്ക്വാഡ് രൂപീകരിച്ചിട്ടുണ്ടെന്നും കലക്ടർ അറിയിച്ചു വയനാട് ജില്ലയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സുഗമമായ നടത്തിപ്പിനായി വിവിധ വിഭാഗങ്ങളുടെ നോഡൽ ഓഫീസർമാരെ നിയമിച്ചു

ദൂരെ സ്ഥലങ്ങളിൽ പോയി വാക്സിനെടുക്കു ന്നതിന് അസൌകര്യമുണ്ടെങ്കിൽ തൊട്ടടുത്ത വാക്സിനേഷൻ കേന്ദ്രങ്ങളെ സമീപിക്കാം ടാഗോർ ഹാളിൽ നാളെയും മറ്റന്നാളും മെഗാ വാക്സിനേഷൻ ക്യാമ്പ് സംഘടിപ്പിക്കുമെന്നും ഡി എം ഒ പറഞ്ഞു

ഈ വിഭാഗത്തിൽപ്പെട്ടവർക്ക് തെരഞ്ഞെടുത്ത വാക്സിൻ കേന്ദ്രങ്ങളിൽ നേരിട്ടെത്തി രജിസ്റ്റർ ചെയ്ത് കുത്തിവെപ്പ് എടുക്കാമെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രാലയം ന്യൂഡൽഹിയിൽ അറിയിച്ചു

സംസ്ഥാന ഗവൺമെന്റുകളുടെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിൽ എംപാനൽ ചെയ്ത സ്വകാര്യ ആശുപത്രികളെ കോവിഡ് വാക്സിനേഷൻ കേന്ദ്രങ്ങളായി അംഗീകരിക്കാൻ സ്വാതന്ത്ര്യം സംസ്ഥാന ഗവൺമെന്റുകൾക്ക് നൽകിയിട്ടുണ്ട്

കോഴിക്കോട് ഒഴികെ ജില്ലകളിൽ അഞ്ഞൂറിൽ താഴെയാണ് രോഗികൾ

രുര പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പരിപാടി മൻകി ബാത്ത് ഇന്ന്

ദൂരദർശനും പരിപാടി സംപ്രേഷണം ചെയ്യും ന്യൂസ് ഓൺ എ ഐ ആർ വെബ്സൈറ്റിലും മൊബൈൽ ആപ്പിലും എ

ഒ യൂട്യൂബ് ചാനലുകളിലും മൻ കി ബാത് ലഭിക്കും പ്രധാനമന്ത്രിയുടെ ഹിന്ദി പ്രഭാഷണം കഴിഞ്ഞാലുടൻ അതിന്റെ മലയാള പരിഭാഷ ആകാശവാണിയുടെ കേരള നിലയങ്ങളിൽ കേൾക്കാം

രാജ്യത്ത് പരിപാടിയിൽ നേരിട്ട് പങ്കെടുക്കുന്നതിന് പ്രധാനമന്ത്രിയുടെ ഓഫീസ് തിരഞ്ഞെടുത്ത ഒൻപത് കേന്ദ്രങ്ങളിൽ ഇത്തവണ കോഴിക്കോടും ഉൾപ്പെടുന്നു

രും രാജ്യത്ത് വെർച്വലായി നടക്കുന്ന പ്രഥമ ദേശീയ കളിപ്പാട്ടമേള പുരോഗമിക്കുന്നു

ഇതിന്റെ പരിശോധനാ ചെലവ് വൈകാതെ ഗണ്യമായി കുറയ്ക്കുമെന്നും അദ്ദേഹം പറഞ്ഞു പ്രഥമ ഇന്ത്യാ കളിപ്പാട്ട മേളയുടെ സി ഇ ഒ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കളിപ്പാട്ട വ്യവസായം കൂടുതൽ എളുപ്പമാക്കുന്നതിനും പരിസ്ഥിതി അനുമതി ലഭിക്കുന്നതിനും ഗുണനിലവാര നിയന്ത്രണങ്ങൾ ഉറപ്പാക്കുന്നതിനും കളിപ്പാട്ട ക്ലസ്റ്ററുകൾക്ക് എല്ലാ പിന്തുണയും നൽകുമെന്ന് അദ്ദേഹം പറഞ്ഞു കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിയും ചടങ്ങിൽ സംബന്ധിച്ചു രും ഇന്ന് ദേശീയ ശാസ്ത്ര ദിനം ഭൌതികശാസ്ത്രജ്ഞനായ സി

ശാസ്ത്രം സാങ്കേതികത നവീകരണം എന്നിവ വിദ്യാഭ്യാസത്തിലും നൈപുണ്യത്തിലും തൊഴിലിലും എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം ശാസ്ത്രവും നവീകരണവും പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ഗവണ്മെന്റ് ഇന്ന് ദേശീയ ശാസ്ത്ര കമ്മ്യൂണിക്കേഷൻ അവാർഡുകൾ സമ്മാനിക്കും രും ദേശീയ ശാസ്ത്രദിന പരിപാടിയുടെ ഭാഗമായി ഭാരതീയ സുഗന്ധവിള ഗവേഷണ കേന്ദ്രം കോളേജ് വിദ്യാർത്ഥികൾക്കായി സയൻസ് മോഡലുകളുടെയും കണ്ടുപിടുത്തങ്ങളുടെയും ഓൺലൈൻ പ്രദർശനവും നോബൽ സമ്മാന ജേതാവ് സി

രുര കാലിക്കറ്റ് സർവകലാശാല സ്റ്റേഡിയത്തിൽ നടക്കുന്ന ദക്ഷിണ മേഖല ജൂനിയർ അത് ലറ്റിക് ചാമ്പൻഷിപ്പിൽ രണ്ടാം ദിവസവും തമിഴ്നാടിന് മുന്നേറ്റം

ആതിഥേയരായ കേരളമാണ് രണ്ടാമത്

രുര ഐ എസ് എൽ ഫുട്ബോളിൽ ഏഴാം സീസണിലെ ലീഗ് റൌണ്ടിൽ അവസാനദിനമായ ഇന്ന് രണ്ട് മത്സരങ്ങൾ

പ്പേ ഓഫിലെ നാലാം ടീമിനെ നിർണയിക്കുന്ന മത്സരമായ തിനാൽ ഗോവ ഹൈദരാബാദ് മത്സരം നിർണായകമാകും പോയന്റ് പട്ടികയിൽ ഗോവ നാലാം സ്ഥാനത്തും ഹൈദരാബാദ് അഞ്ചാം സ്ഥാനത്തുമാണ് മത്സരം സമനിലയിലായാൽ ഗോവ പ്ലേഓഫിൽ പ്രവേശിക്കും വിജയിച്ചാൽ ഹൈദരാബാദിന് പ്ലേ ഓഫിലെത്താം ഇന്നലെ നടന്ന മത്സരത്തിൽ അഞ്ചിനെതിരെ ആറു ഗോളുകൾക്ക് ഒഡീഷ എഫ് സി ഈസ്റ്റ് ബംഗാളിനെ തോല്പിച്ചു

പരീക്ഷകൾ വെള്ളിയാഴ്ച പൂർത്തിയാകും ദ്ദേ ആകാശവാണിയുടെ കൊച്ചി ലേഖകനും ന്യൂസ് അസിസ്റ്റന്റ് ഡയറക്ടറും ആയ എൻ

ഇന്ത്യൻ ഇൻഫർമേഷൻ സർവീസിലെ സീനിയർ ഉദ്യോഗസ്ഥനായ ജയചന്ദ്രൻ ആകാശവാണിക്കു പുറമെ പ്രസ്സ് ഇൻഫർമേഷൻ ബ്യൂറോ ഫീൽഡ് ഔട്രീച്ച് ബ്യൂറോ എന്നിവിടങ്ങളിലും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്